അവസരമൊരുക്കുകയും ചെയ്യുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോള കമ്പനികളോട് ഇന്തൃയിൽ നിക്ഷേപം നടത്തണമെന്നും പ്രധാനമന്ത്രി

വികസനത്തിന് മനുഷ്യ കേന്ദ്രീകൃത സമീപനം സ്വീകരിക്കുന്ന നയമാണ് രാജ്യം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഗ്ലോബൽ വീക്കിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവ്വഹിച്ച് ക്സ്ക്സാരിക്കുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളിലേയ്ക്ക്

ലോകത്തെ തന്നെ തുറന്ന സാമ്പത്തിക വിപണിയാണ് ഇന്ത്യയുടേത് ചില രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് മികച്ച അവസരം നൽകാൻ തയ്യാറായിട്ടുണ്ട് കൃഷി എം എസ് എം

ആത്മ നിർഭർ എന്നാൽ മറ്റു രാജൃങ്ങൾക്ക് അവസരം നിഷേധിക്കൽ എന്നല്ല സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി കൈവരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സഹാനുഭൂതിയിൽ ഉൌന്നിയുള്ള പരിഷ്കാരങ്ങൾക്കാണ് ഇന്ത്യ മുൻതൂക്കം നൽകുന്നത് സാമ്പത്തിക സ്ഥിതിയുടെയും പരിസ്ഥിതിയുടെയും സുസ്ഥിരതയ്ക്ക് ഇത് ആവശ്യമാണെന്നും ആഗോള മാറ്റത്തിൽ ഇന്ത്യ നിർണായക പങ്കാണ് വഹിക്കുന്നത് ലോകത്തിന്റെ നന്മയ്ക്കും സമൃദ്ധിയ്ക്കും വേണ്ടി എന്ത് മാറ്റം സ്വീകരിക്കാനും ഇന്തൃ തയ്യാറാണെന്നും അദ്ദേഹം വൃക്തമാക്കി

ന്യൂസ് ഡെസ്ക് ആകാശപാണി

വാരണസിയിലെ സന്നദ്ധ സംഘടനാ പ്രതിനിധികളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം

കോവിഡ് വ്യാപനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങള്ള് അപേക്ഷിച്ച് ഇന്ത്യയിലെ സ്ഥിതി മെച്ചപ്പെട്ടതാണെന്ന് യോഗം വിലയിരുത്തി വിശദാംശങ്ങളിലേയ്ക്ക്

ബുധനാഴ്ചയാണ് സംസ്ഥാനത്ത് ആദ്യമായി മുന്നൂറിലധികം പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത്

മധ്യപ്രദേശിലെ അൾട്ട്ട് മെഗാ സോളാർ പ്താന്റാണ് നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്

എസ് ഇ സിലബസിൽ നിന്ന് ചില പാഠഭാഗങ്ങൾ ഒഴിവാക്കിയതു സംബന്ധിച്ച് ചിലർ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി രമേഷ് പൊഖ്രിയാൽ നിഷാങ്ക് പറഞ്ഞു ചിത്രീകരിക്കുകയാണ് ഇത് സംബന്ധിച്ച് നിരവധി കോണുകളിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെടാത്ത വിവരങ്ങൾ പരക്കുകയാണ് കൂട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന് നമ്മുടെ പരിശുദ്ധ ധർമ്മമാണെന്ന് മന്ത്രി പറഞ്ഞു

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ്സിംഗ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു വിദൂര മേഖലകളുടെ വികസനത്തിലൂടെ രാജ്യത്തിന്റെ സമഗ്ര വികസനം ഉറപ്പാക്കുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു

കിഷൻ റെഡ്സിയും ലഫ്റ്റനന്റ് ഗവർണർ ജി

മുർമുവും വിലയിരുത്തി

മേഖലയിൽ നിരവധി പദ്ധതികൾ കാർഷിക മേഖലയിൽ നടപ്പാക്കുമെന്ന് ചീഫ് അഗ്രികൾച്ചർ ഓഫീസർ കച്ചോ മുഹമ്മദ് അലി ഖാൻ അറിയിച്ചു

കുടുംബാംഗങ്ങളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധൃത്തിൽ മുംബൈയിലെ മസ്ഗാവിൽ അദ്ദേഹത്തിന്റെ സംസ്ക്കാര ചടങ്ങുകൾ നടന്നു